ആറ് പേർ രോഗമുക്തി നേടി

കെ അർജ്ജുനൻ അന്തരിച്ചു

ബാൽക്കണികളിലും മട്ടുപ്പാവുകളിലും വീട്ടുവാതിൽക്കലും മൺചെരാതുകളും മെഴുകുതിരിയും ടോർച്ചും മൊബൈൽ ഫ്ളാഷ് ലൈറ്റുകളും തെളിയിച്ച് ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്തു

കേരള ജനതയും ഇതിൽ പൂർണ്ണമായി പങ്കാളികളായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ദീപത്തിന്റെ പ്രതിരോധം തീർക്കാൻ ജനങ്ങളോടൊപ്പം പങ്കുചേർന്നു

ആദ്ധ്യാത്മിക സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖരാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയതെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ ഗവൺമെന്റിനൊപ്പം നിൽക്കാനുള്ള ജനങ്ങളുടെ മനസ്സാണിതിലൂടെ വ്യക്തമാകുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു

ആറുപേർ രോഗമുക്തി നേടിയതായി മന്ത്രി കെ

കോഴിക്കോട് ജില്ലയിൽ അഞ്ചും കാസർകോട് കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് നിസാമുദ്ദീനിൽ നിന്നും വന്ന നാലുപേർക്കും ദുബായിൽനിന്നും വന്ന ഒരാൾക്കുമാണ് കോഴിക്കോട്ട് രോഗം സ്ഥിരീകരിച്ചത് പത്തനംതിട്ടയിൽ രോഗം സ്ഥിരീകരിച്ചയാൾ ഡൽഹിയിൽനിന്നും വന്നയാളാണ് കാസർകോട് ജില്ലയിൽ സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

കണ്ണൂർ ജില്ലയിൽ നാലുപേരും തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയും കോഴിക്കോട് ജില്ലയിലെ ഒരാളുടെയും ഫലമാണ് ഇന്നലെ നെഗറ്റീവ് ആയത്

രണ്ടുപേർ നേരത്തെ മരണമടഞ്ഞിരുന്നു

ഇന്നലെ ഒരാൾക്കൂടി രോഗം ഭേദമായി ആശുപത്രി വിട്ടു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

നാലുദിവസംകൊണ്ടാണ് രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം ഇരട്ടിയായതെന്ന് കേന്ദ്ര ആരോഗ്യമന്താലായ ജോയിന്റ് സെക്രട്ടറി ലെവ് അഗർവാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു

അമേരിക്കയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മരണം

ഇതോടെ യു

അതിനിടെ പത്തുദിവസം മുമ്പ് രോഗം സ്ഥിരീകരിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണെ ആശുപത്രിയിലേക്ക് മാറ്റി

ഇക്കാര്യത്തിൽ പ്രവാസി മലയാളി സംഘടനകളും വിദേശ രാജ്യങ്ങളിലെ പ്രമുഖ മലയാളി വ്യക്തിത്വങ്ങളും മുൻകൈയെടുക്കണമെന്നും ലോകത്തെ മലയാളി സമൂഹത്തോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു പ്രമുഖ പ്രവാസി മലയാളികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ മുഖ്യമന്ത്രി കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട സാഹചര്യം വിലയിരുത്തി

ഇവിടെ സാധാരണ ചികിത്സകൾക്ക് രോഗികൾക്ക് വരാനുള്ള പ്രയാസം അനുഭവപ്പെടുമെന്നും മറ്റെല്ലാ ആശുപത്രികളും തുറന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രി തിരുവന്തപുരത്ത് പറഞ്ഞു രുഭ പട്ടികവർഗ കോളനികളിൽ പഴുതടച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രമോട്ടർമാരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി എ

പാലക്കാട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന പട്ടികവർഗ മേഖലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രുമ ജമ്മു കശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് സൈനികർക്ക് വീരമൃത്യു അഞ്ച് ഭീകരരെ സൈന്യം വധിച്ചു

കേന്ദ്രങ്ങൾ ശംസബാരിയിലൂടെയാണ് ഭീകരർ രാജ്യത്ത് പ്രവേശിച്ചതെന്ന് സംശയിക്കുന്നതായി അവർ പറഞ്ഞു

അസുഖബാധിതനായി കുറേ നാളായി ചികിത്സയിലായിരുന്നു

തുടർന്ന് സിനിമാരംഗത്തെത്തിയ എം കെ അർജ്ജുനൻ ആയിരത്തിലേറെ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവ്വഹിച്ചു അർജ്ജുനൻ മാസ്റ്റർ ശ്രീകുമാരൻ തമ്പി കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് പുത്തനുണർവ്വാണ് നല്കിയത് നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഇവരുടെ കൂട്ടുകെട്ടിൽ രൂപം കൊണ്ടിട്ടുണ്ട്

രേര മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ജനങ്ങൾക്ക് ആശംസ നേർന്നു അക്രമരാഹിത്യം സത്യസന്ധത ഐക്യം എന്നിവയിൽ മഹാവീരിന്റെ ചിന്തകൾ പ്രായ വ്യത്യാസമില്ലാതെ മുഴുവൻ പേർക്കും പാഠമാകണമെന്ന് ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു ലോകത്തെ ശരിയായ ദിശയിൽ നയിക്കുന്നതിൽ വിലപ്പെട്ട പങ്ക് വഹിച്ചവരിൽ ഒരാളാണ് മഹാവീറെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ആര്യങ്കാവ് ചെക്ക്പോസ്റ്റ് വഴി കാലിത്തീറ്റ കോഴിത്തീറ്റ പാൽ മുട്ട വൈക്കോൽ എന്നിവയുടെ നീക്കം തടസ്സപ്പെട്ടതിനെത്തുടർന്ന് മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു